രാമകൃഷ്ണൻ കെ കൃഷ്ണൻകുട്ടി എ

ഐ

ഇടുക്കി പാക്കേജ് സെമിനാർ ഇടുക്കി ജില്ലയുടെ സമഗ്ര മേഖലയുടെയും പുരോഗതി ലക്ഷ്യമാക്കി നിയമസഭയിൽ പ്രഖ്യാപിച്ച ഇടുക്കി പാക്കേജ് സംബന്ധിച്ച് ജില്ലാതല സെമിനാർ നാളെ ഇടുക്കി ഐ

ആസൂത്രണ ബോർഡ് മെമ്പർ പ്രൊഫ

രാമകുമാർ വിഷയാവതരണം നടത്തും